ലഭിക്കുന്നതിനുള്ള നടപടികൾ ഈ മാസം പകുതിയോടെ പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു ജലനിരപ്പ് താഴ്ന്നതിനെത്തുടർന്ന് ഇടുക്കി ഡാമിന്റെ ന് രണ്ട് ഷട്ടറുകൾ കൂടി അടച്ചു

ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങുകൾക്ക് തുടക്കം

എലിപ്പനി ശക്തമായി നിയന്ത്രിക്കുന്നതിനുവേണ്ടി അന്താരാഷ്ട്ര മാനദണ്ഡമനുസരിച്ച് പ്രതിരോധം ചികിത്സ സാമ്പിൾ കളക്ഷൻ എന്നിവയിൽ പാലിക്കേണ്ട നിബന്ധനകൾ എന്നിവ ഉൾക്കൊള്ളിച്ച് ആരോഗ്യവകുപ്പ് ചികിത്സ പ്പോട്ടോക്കോൾ പുറത്തിറക്കി

പുനരധിവാസത്തിന് ശേഷമുള്ള കുട്ടനാട്ടിലെ സ്ഥിതി വിലയിരുത്തുന്നതിനും ജനങ്ങളുടെയും പഞ്ചായത്ത് അധികൃതരുടെയും പരാതികൾ പരിഹരിക്കുന്നതിനുമായി കുട്ടനാട്ടിലെ എല്ലാ പഞ്ചായത്തിലും സന്ദർശനം നടത്തുകയായിരുന്നു മന്ത്രി കുട്ടനാട്ടുകാർക്ക് വീടുകളിലെ നഷ്ടമായ സാധന സാമഗ്രികൾ വാങ്ങുന്നതിന് കുടുംബശ്രീ വഴി ഒരു ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നതിന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു പലിശ ഗവൺമെന്റ് അടയ്ക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രളയത്തിൽ റേഷൻകാർഡ് ആധാർ ആധാരം തുടങ്ങിയ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് ഒറ്റ ദിവസത്തെ അദാലത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു

കുഴിഞ്ഞ മാസം നിശ്ചയിച്ച യാത്ര പ്രളയക്കെടുതിയെ തുടർന്ന് മാറ്റിവയ്ക്കുകയായിരുന്നു

മുഖ്യമന്ത്രിയുടെ അഭാവ്ക് സംസ്ഥാനത്തെ പ്രളയ ദുരിതാശാസ പ്രവർത്തനത്തെ ഒരുത്ത്തിലും ബാധിക്കില്ലെന്ന് മന്ത്രി ഇ

ജയരാജൻ തിരുവനന്ത്പുരത്ത് പറഞ്ഞു ജില്ലകളുടെ ചുമതല നൽകിയ മന്ത്രിമാർ ജില്ലാതല പരിപാടികൾ ഏകോപിപ്പിക്കും

പ്രളയാനന്തര ശുചീകരണ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് ഊർജ്ജിതമായി പുരോഗമിക്കുന്നു

പ്രളയമേഖലയിലെ സ്കൂളുകളിൽ നോട്ട് ബുക്കുകളുടെ വിതരണം ആരംഭിച്ചുകഴിഞ്ഞു നഷ്ടപ്പെട്ട സ്കൂൾ ബാഗുകളും മറ്റ് പഠന സാമഗ്രികളും നൽകാനും നടപടി എടുത്തിട്ടുണ്ട്

പഞ്ചസാരയും സൌജനൃറ്റേഷ്നും ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇത് ബാധകമാണെന്നും അദ്ദേഹം പറഞ്ഞു

ജില്ലയിൽ കാലവർഷം കനക്കുകയും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വ്യാപകമാകുകയും ചെയ്തിരുന്നു

വിവിധ ബ്ലോക്കുകൾ അതിനുകീഴിൽ വരുന്ന പഞ്ചായത്തുകൾ വാർഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ജില്ലയിൽ ശുചീകരണ യജ്ഞം നടന്നത് ഓരോ ബ്ലോക്കില്ലേക്കും ജില്ലാഭരണകൂടം നിയോഗിച്ച വിവിധ വകുപ്പുകളുട്ടെയും മിഷനുകളുടെയും തലവന്മാരുടെ ഏകോപനത്തിലാണ് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ശുചീകരണ പ്രവൃത്തികൾ ആരംഭിക്കും മുമ്പ് എലിപ്പനി പ്രതിരോധ മരുന്ന് എല്ലാവർക്കും നൽകി രാവിലെ എട്ടുമ്ണിക്കാണ് എല്ലായിടത്തും ശുചീകരണം ആരംഭിച്ചത്

കാലാവസ്ഥാ വിഭാഗത്തിന്റെ പരിശോധന മറ്റന്നാൾ ആരംഭിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

പ്രളയക്കെടുതികൾ മൂലം ജന്മാഷ്ടമി ആഘോഷങ്ങൾ ഒഴിവാക്കി പ്രാർത്ഥാനാ ദിനമായി ആചരിക്കുമെന്ന് പ്രബാലകഗോകുലമടക്കം സംഘടനകൾ അറിയിച്ചു

കാറ്റുവീഴ്ച കീടങ്ങളുടെ ആക്രമണം ശാസ്ത്രീയമായ കൃഷിയുടെ കുറവ് എന്നിവ നാളികേരത്തിന്റെ ഉല്പാദനത്തെ ബാധിച്ചിട്ടുണ്ട് പ്രളയം നാളികേര കൃഷിയെ ബാധിച്ചെങ്കിലും തെങ്ങിൻ പുരയിടങ്ങളിൽ അടിഞ്ഞ എക്കൽമണ്ണ് വളമാകുമെന്ന പ്രതീക്ഷയും ഈ രംഗത്തുള്ളവർ പുലർത്തുന്നു ഗുണമേന്മയുള്ള തൈകൾ നട്ടുവളർത്തിയും ശാസ്ത്രീയമായ പരിചരണത്തിലൂടെ രോഗ കീടബാധകളെ നിയന്ത്രിച്ചും നാളികേര ഉല്പാദനം വർദ്ധിപ്പിക്കാമെന്ന് വിദഗ്ധർ പറയുന്നു

ടി

ചടങ്ങിൽ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൺ റാണി രാംപാലാണ് ഇന്ത്യൻ പതാകയേന്തുന്നത്

മെഡൽ പട്ടികയിൽ ചൈനയ്ക്കാണ്ട് ഒന്നാം സ്ഥാനം ജപ്പാൻ രണ്ടാം സ്ഥാനത്തും ദക്ഷിണ്ടുകൊറിയ മൂന്നാം സ്ഥാനത്തുമാണ്

മികച്ച അധ്യാപകർക്കുള്ള അവാർഡ് മികച്ച പി ടി

ക്കുള്ള അവാർഡ് അധ്യാപകരുടെ സാഹിത്യ രചനയ്ക്കുള്ള പ്രൊഫ മുണ്ടശ്ശേരി പുരസ്കാരം എന്നിവ ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫ

രവീന്ദ്രനാഥ് വിതരണം ചെയ്യും